പോളിംഗ് ബൂത്തിലേക്ക്

വളർച്ചയുടെ കഥയെന്ന് ഉപരാഷ്ട്രപതി എം

ഇന്ന് പാകിസ്ഥാനെ നേരിടും

രണ്ട് ഘട്ടമായി നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ് നാളെ നടക്കുന്നത്

തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു ലക്ഷത്തോളം സേനാംഗങ്ങളെ വിവിധ മണ്ഡലങ്ങളിൽ നിയോഗിച്ചതായി നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ഡയറക്ടർ ജനറൽ ഡി

ഈ അവസരം ഇന്ത്യൻ പ്രവാസികൾ ഉപയോഗപ്പെടുത്തണമെന്നും ഇന്ത്യയിൽ നിക്ഷേപങ്ങൾ നടത്തണമെന്നും ഇന്ത്യയുടെ പുരോഗമന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യ മുന്നോട്ട് വെയ്ക്കുന്ന നവീകരണ മാർഗ്ഗങ്ങൾ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ആകെ മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത ശ്രമമായി അന്താരാഷ്ട്ര സൌരോർജ്ജ കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

നൂറിലധികം പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച തലസ്ഥാനനഗരിയിലെ ഒരു ഹോട്ടലിനു സമീപം നടന്ന ദ കാർബോംബ് സ്ഫോടനങ്ങളിൽ കെട്ടിടം പൂർണമായും തകർന്നു

സോമാലിയയിലെ ദേശവിരുദ്ധ തീവ്രവാദ സംഘമായ അൽ ഷബാബ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെട്ടുത്തിട്ടുണ്ട്

ലുധിയാനയിലെ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ ഒന്നാമത് എത്തിക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ വളരെ വേഗം പുരോഗതിയിലേയ്ക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ സംസ്കാരവും പാരമ്പര്യവും മൂല്യങ്ങളും വിലമതിക്കാനാവാത്തതാണെന്നും അത് സംരക്ഷിക്കേണ്ട ബാധൃത നാം ഓരോരുത്തർക്കും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരനാഥിലേക്കുള്ള റിംഗ് റോഡാണ് ഇതിൽ പ്രധാനം

വാരാണസി മേഖലയിലെ ഗതാഗതക്കുരുക്കും മലിനീകരണവും തടയാൻ പദ്ധതികൾക്ക് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്

പദ്ധതികൾ വാരാണസി നഗരത്തിന് പുതിയ മുഖം നൽകുമെന്ന് പ്രധാന മന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു

ഇറക്കുമതി ചെയ്യുന്ന മത്സൃത്തിൽ തുടർച്ചയായി ഫോർമാലിന്റെ സാന്നിദ്ധൃം കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ പനാജിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറുമാസത്തിന് ശേഷം സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭക്ഷ്യസുരക്ഷ നിലവാരത്തിൽ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ശ്രീ റാണെ കൂട്ടിച്ചേർത്തു

ഇന്നലെ രാത്രി പത്തരയോടെ അനുഭവപ്പെട്ട ഭൂകമ്പം സംസ്ഥാന തലസ്ഥാനമായ ഐസ്വാളിനേയും പിടിച്ചു കുലുക്കി ഭൂകമ്പത്തിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ഇരുരാജ്യങ്ങളും കഴിഞ്ഞ ്സെപ്റ്റംബറിൽ ഒപ്പുവച്ച ഉടമ്പടിയെതുർന്നാണ് സേന പിൻമാറ്റ് പൂർത്തിയാക്കിയത്

മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ശത്രുതയ്ക്ക് അയവുവരുത്തുന്നതിസ്മൂരിക്ക് സൈനിക ഉടമ്പടി ഏറെ സഹായകരമാണെന്ന് ദ്ദക്ഷിണകൊറിയൻ പ്രതിരോധമന്ത്രാലയം ഉദ്യോഗസ്ഥൻ പറഞ്ഞു

ആന്ധ്രപ്രദേശ് കാക്കിനട തുറമുഖത്ത് നിന്നാണ് കപ്പൽ എത്തിയത്

നേരത്തെ ട്രെയിൻ മാർഗമാണ് അരി കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത്

വാർദ്ധകൃ സഹജമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു അവർ

ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നി എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര ലോകത്ത് എത്തിയത്

ചിറയിൻകീഴ് പെരുങ്ങുഴി മുട്ടപ്പലം ചിലക്കൂർ വീട്ടിൽ വിമൽ എം നായർ കഴക്കൂട്ടം കാര്യവട്ടം വിയാറ്റ് ദേവി ക്ഷേത്രത്തിന് സമീപം സരസ്വതി ഭവനിൽ ബിനു എന്നിവരെയാണ് ഇന്നലെ പൊലീസ് അറസ്റ്റ് ചെയ്തത്

റോഷ്നി പദ്ധതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനവും മലയാള ഭാഷ പരിജ്ഞാന രേഖ സമീക്ഷ യുടെ പ്രകാശനവും കൊച്ചിയിൽ നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി